കൊച്ചിക്കും മാലിക്കുമിടയിൽ യാത്രാ ചരക്ക് കപ്പൽ ആരംഭിക്കാൻ ഇന്ത്യയും മാലദ്വീപും ധാരണയിലെ ത്തി

മുരളീധരൻ

്റ് സംസ്ഥാനത്ത് വർഷകാല ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി നിലവിൽ വരും

പി ദിനേഷ് രാഷ്ട്രങ്ങൾ പിന്തുണ നൽകുന്ന ഭീകരവാദമാണ് ലോകം നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണിയെന്ന് പ്രധാനമന്ത്രി നരേ ന്ദ്രമോദി പറഞ്ഞു ഭീകരവാദ ഭീഷണി നേരിടാൻ ലോകനേ താക്കൾ ഒന്നിച്ച് നിൽക്കണമെന്ന് അദ്ദേഹം ആവശൃപ്പെട്ടു മാലിയിൽ മാലദ്വീപ് പാർലമെന്റായ മജ്ലിസിനെ അഭിസംബോ ധന ചെയ്യുകയായിരുന്നു നരേന്ദ്ര മോദി ഭീകൃരവാദം ഏതെ ങ്കിലും ഒരു രാജൃത്തിന്റെ മാത്രം ഭീഷണിയ്ല്ലെന്നും മുഴുവൻ സംസ്കാരത്തിനും ഭീഷണിയാണെന്നും അദ്ദേഹം പറഞ്ഞു ആഗോള വെല്ലുവിളിയായ കാലാവസ്ഥാ വൃതിയാനം നേരി ടുന്നതിന് ലോകസമൂഹം കൺവെൻഷനുകളും യോഗങ്ങളും സംഘടിപ്പിച്ചിട്ടുണ്ട് ഭീകരവാദത്തിനെതിരായ ആഗോള സമ്മേ ളനത്തിന്റെ സമയമാണിതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു മാലദ്വീപിന്റെ പരമോന്നത ബഹുമതിയായ നിഷാൻ ഇസു ദ്ദീൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചു മാലദീപ് പ്രസിഡന്റിന്റെ വസതിയിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് ഇബ്രാഹിം മുഹമ്മദ് സ്വാലിയാണ് പുരസ്കാരം സമ്മാനിച്ചത് ഇരുരാജൃങ്ങളും തമ്മിലെ ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് പ്രധാന പങ്ക് വഹിച്ചതിനാണ് നരേന്ദ്രമോദിക്ക് പുരസ്കാരം നൽകിയത് മാലദ്വീപ് മുൻ പ്രസിഡന്റുമാരായ മൌമൂൻ അബ്ദൂൾ ഗയൂം മുഹമ്മദ് നഷീദ് എന്നിവരുമായി നരേന്ദ്രമോദി കൂടി ക്കാഴ്ച നടത്തി

നരേന്ദ്രമോദി മാലദ്വീപ് സന്ദർശനം പൂർത്തിയാക്കി ഇന്ന് ശ്രീലങ്കയിലെത്തും കൊച്ചിയ്ക്കും മാലദ്വീപ് തലസ്ഥാനമായ മാലിക്കുമിടയിൽ യാത്രാ ചരക്ക് കപ്പൽ ആരംഭിക്കും പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയും മാലദ്വീപ് പ്രസിഡന്റ് ഇബ്രാഹിം മുഹമ്മദ് സ്വാലിഹും നടത്തിയ കൂടിക്കാഴ്ചയിലാണ് യാത്രാ ചരക്ക് കപ്പൽ സ്ഥിരമായി സർവ്വീസ് നടത്താൻ കരാർ ഒപ്പുവെച്ചത്

കപ്പൽ സർവ്വീസ് എത്രയും വേഗം ആരംഭിക്കാൻ ഉദ്യോഗ സ്ഥർക്ക് ഇരു നേതാക്കളും നിർദ്ദേശം നൽകി ഇതുൾപ്പെടെ ആറ് ധാരണാ പത്രങ്ങളിലാണ് ഇരു നേതാക്കളും തമ്മിലെ ചർച്ച യ്ക്കുശേഷം ഇന്ത്യയും മാലദ്വീപും ഒപ്പുവെച്ചത് മാലദ്വീപിന്റെ തെക്കുഭാഗത്ത് ഇന്ത്യ പള്ളി നിർമ്മിക്കുമെന്ന് മോദി അറിയി ച്ചു തീര നിരീക്ഷണത്തിനായി ഇന്ത്യ നിർമ്മിച്ച റഡാർ സംവി ധാനത്തിന്റെയും മാലദ്വീപ് പ്രതിരോധ സേനയുടെ പരിശീലന കേന്ദ്രത്തിന്റെയും ഉദ്ഘാടനം മോദിയും ഇബ്രാഹിം സ്വാലിഹും ചേർന്ന് നിർവ്വഹിച്ചു

മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് കോഴിക്കോട്ട് നൽകിയ പൌരസ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തില എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലും പാസ്പോർട്ട് സേവാകേന്ദ്രങ്ങൾ യാഥാർഥ്യമാക്കും ഇന്ത്യയെ അറിയുക എന്ന പ്രമേയമുയർത്തി വിദേശകാര്യവകുപ്പ് സംഘടിപ്പിക്കുന്ന പരിപ്പാടിക്ക് ഒക് ടോബറിൽ കേരളം വേദിയാകുമെന്ന് അദ്ദേഹം അറിയിച്ചു വിദേശങ്ങളിൽ പഠനവും ജോലിയും ആവശ്യമായി പോകുന്നവർ വഞ്ചിക്കപ്പെടാതിരിക്കാൻ നിയമം കൊണ്ടുവരുന്ന കാര്യവും ഗവൺമെന്റിന്റെ പരിഗണനയിലാണ് വിമാനയാത്രാക്കൂലി കുറക്കുന്ന ക്ടാര്യത്തിൽ വ്യോമയാന മന്ത്രാലയുമായി ചർച്ച നടത്തിയതായും മുരളീധരൻ അറിയിച്ചു സൌരോർജ്ജവികസന പങ്കാളിത്തത്തിന്റെ ആഗോള മാതൃകയായി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തെ മാറ്റാനുള്ള ശ്രമവും നടത്തിവരികയാണെന്നും അദ്ദേഹം പറഞ്ഞു പ്രീ ഡിപ്പാർച്ചർ ഓറിയന്റേഷൻ ട്രെയിനിംഗ് സെന്ററിന് അനുബ്ന്ധമായി കോഴിക്കോട്ടും തിരുവനന്തപുരത്തും നോർക്കയുമായി ചേർന്ന് പരിശീലന സൌകര്യം ഒരുക്കുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സത്യത്തിനും സ്നേഹത്തിനും വേണ്ടിയാണ് നിലകൊണ്ടതെന്ന് പാർട്ടി അധ്യക്ഷനും വയനാട് എം

പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാ രണം വിദ്ധേഷവും വിഷലിപ്തവുമായിരുന്നുവെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി ജനാധിപത്യ രീതിയിൽ മാത്രമേ കോൺഗ്രസ് പ്രവർത്തിക്കൂ എന്നും രാഹുൽ ഗാന്ധി വൃക്തമാക്കി പ്രധാനമന്ത്രി പ്രതിനിധാനം ചെയ്യുന്ന വെറുപ്പിന്റെ രാഷ്ട്രീ യത്തിനെതിരെ കോൺഗ്രസ് പോരാട്ടം തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു വയനാട്ടിലെ മാനന്തവാടിയിൽ റോഡ് ഷോയ്ക്കിടെ ഗാന്ധിപാർക്കിൽ വോട്ടർമാരോട്ട് നന്ദി പറഞ്ഞ് സംസാരിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി വ്യനാടിനും കേരളത്തിനും വേണ്ടി നിലകൊള്ളുമെന്നും അദ്ദേഹം അറി യിച്ചു ഇന്ന് കോഴിക്കോട് ജില്ലയിലെ ഈങ്ങാപ്പുഴ മുക്കം എന്നി വിടങ്ങളിൽ രാഹുൽഗാന്ധി പര്യടനം നടത്തും പത്തിന് ഈങ്ങാപ്പുഴയിൽനിന്ന് ആരംഭിക്കുന്ന റോഡ് ഷോ മുക്കത്ത് സമാപിക്കും തുടർന്ന് കരിപ്പൂരിൽ നിന്ന് പ്രത്യേക വിമാന ത്തിൽ രാഹുൽ ഗാന്ധി ഡൽഹിക്ക് പോകും തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ഇടതുപക്ഷം ആത്മപരിശോ ധന നടത്തണമെന്ന് മുതിർന്ന സി

എം നേതാവ് വി

ദേശീയാടിസ്ഥാന ത്തിൽ ഇടതുപക്ഷത്തിനും മതനിരപേക്ഷ രാഷ്ട്രീയത്തിനും വലിയ തിരിച്ചുടി നേരിട്ടതിന്റെ ശരിയായ കാരണം കണ്ടെത്ത ണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ചെങ്ങളത്ത് രാമകൃ ഷ്ണപിള്ള പുരസ്കാരം ഏറ്റുവാങ്ങി സംസാരിക്കുകയായി രുന്നു വി

സംസ്ഥാനത്ത് വർഷകാല ട്രോളിങ് നിരോധനം ഇന്ന് അർധരാത്രി നിലവിൽ വരും

കൊല്ലം നീണ്ടകര പാലത്തിന്റെ തൂണുകളിൽ ചങ്ങലയുടെ പൂട്ട് ബന്ധിച്ചു വിസിൽ മുഴങ്ങുന്നതോടെയാണ് ട്രോളിങ് നിരോധനം നിലവിൽ വരിക യന്ത്രവൽകൃത മത്സ്യബന്ധന ബോട്ടുകൾക്കും എഞ്ചിൻ ഘടിപ്പിച്ച യാനങ്ങൾക്കും നിരോധനം ബാധകമാണ് പരമ്പരാ ഗത വള്ളങ്ങൾക്ക് നിരോധനമില്ല

മത്സ്യ ഉല്പാദന പരിപാലന മേഖലയിൽ സംസ്ഥാനത്ത് നടക്കുന്നത് നിശബ്ദ വിപ്ലവമാണെന്നും മത്സ്യസമ്പത്തിൽ രണ്ടുലക്ഷം ടണ്ണിന്റെ വർധന കഴിഞ്ഞ വർഷം ഉണ്ടായെന്നും മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ പറഞ്ഞു

ലണ്ടനിൽ ലോകകപ്പ് ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും വൈകിട്ട് മൂന്നിന് മത്സരം ആരം ഭിക്കും ആദ്യകളിയിൽ ഇന്ത്യ ദക്ഷിണാഫ്രിക്കയെ പരാജയ പ്പെടുത്തിയിരുന്നു

മറ്റൊരു മത്സരത്തിൽ ന്യൂസിലാൻഡ് ഏഴ് വിക്കറ്റിന് അഫ്ഗാനിസ്ഥാനെ തോൽപ്പിച്ചു

് കണ്ണൂർ മൊറാഴ സ്വദേശി രാജന്റെ മൃതദേഹം ഇന്ന് രാവിലെ എട്ടോടെ കോഴിക്കോട് വിമാനത്താവളത്തിലെത്തിക്കും

തിരുവനന്തപുരം മാധവപുരം സ്വദേശി ദീപകുമാറിന്റെയും കോട്ടയം പാമ്പാടിയിലെ വിമൽ കുമാറിന്റെയും ഭൌതിക ശരീ രങ്ങൾ ഇന്ന് രാവിലെ തിരുവനന്തപുരം വിമാനത്താവളത്തി ലെത്തിക്കും തലശ്ശേരി സ്വദേശികളായ ഉമറിന്റെയും മകൻ നബീലി ന്റെയും മൃതദേഹങ്ങൾ ഇന്ന് പുലർച്ചെ തലശ്ശേരി മുഖ്ദാർ പള്ളി കബർസ്ഥാനിൽ കബറടക്കി തൃശൂർ വള്ളിത്തോട്ടത്തിൽ വീട്ടിൽ കിരൺ ജോണിയുടെ മൃതദേഹം ഇന്നലെ രാത്രി കരിപ്പൂർ വിമാനത്താവളത്തിലെ ത്തിച്ചു

അപകടത്തിൽ മരിച്ച മലയാളികൾ ഉൾപ്പെടെ ഇന്ത്യക്കാ രുടെ മൃതദേഹങ്ങൾ സൌജന്യമായി നാട്ടിലെത്തിക്കാൻ നട പടി സ്വീകരിച്ചതായി വിദേശകാര്യ സഹ്മന്ത്രി വി

മന്ത്രിയായ ശേഷം കോഴിക്കോട്ടെത്തിയ അദ്ദേ ഹത്തിന് റെയിൽവേ സ്റ്റേഷനിൽ ബി

പി പ്രവർത്തകർ നൽകിയ സ്വീകരണയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിൽ പുതിയ നിപ വൈറസ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ഹർഷ വർദ്ധൻ അറി യിച്ചു നിപ സ്ഥിരീകരിച്ച വിദ്യാർത്ഥിയുടെ ആരോഗ്യസ്ഥിതി തൃപ്തികരമാണെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു

ബാക്കി ഏഴുപേരുടെ നില തൃപ്തിക രമാണ്

നിപ കാലത്തെ തൊഴിലാളികൾ നടത്തി വരുന്ന അനിശ്ചിതകാല നിരാഹാര സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് എം കെ രാഘവൻ എം പി നടത്തിയു ഏകദിന ഉപവാസത്തിന്റെ സമാപന ചടങ്ങിൽ കോഴിക്കോട് മെഡി ക്കൽ കോളേജ് പരിസരത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

വരും ദിവസങ്ങളിലും മഴ ശക്തമാകാൻ അനു കൂല സാഹചര്യമാണുള്ളതെന്നും അറിയിപ്പിൽ പറയുന്നു അതിനിടെ അറബിക്കടലിൽ രൂപം കൊള്ളുന്ന ന്യൂനമർദ്ദം ശക്തിയാർജ്ജിക്കാൻ സാധ്യതയില്ലെന്ന നിരീക്ഷണത്തെത്തു ടർന്ന് നാല് ജില്ലകളിൽ പ്രഖ്യാപിച്ച അതി ജാഗ്രതാ മുന്നറി യിപ്പായ റെഡ് അലർട്ട് പിൻവലിച്ചു

നാളെ എറണാകുളം മലപ്പുറം ജില്ലകളിലും മറ്റ ന്നാൾ എറണാകുളം തൃശൂർ മലപ്പുറം ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഓറഞ്ച് അലർട്ട് പ്രഖ്യാപി ച്ചു ഈ ജില്ലകളിൽ അതിശക്തമായ മഴ്യ്ക്ക് സാധ്യതയു ണ്ടെന്നാണ് പ്രവചനം

അമ്പല പ്പുഴയിലെ കോമന കാക്കാഴം നീർക്കുന്നം എന്നിവിടങ്ങളിലും ചേർത്തലയിലെ ഒറ്റമശ്ശേരിയിലുമാണ് കടൽക്ഷോഭം ഉണ്ടായ ത് രണ്ട് വീടുകൾ തകർന്നു പത്തു വീടുകൾ ഏത് നിമിഷവും കടൽ എടുക്കുമെന്ന നിലയിലാണ് കൊങ്കൺ റൂട്ടിൽ വർഷകാല സമയക്രമം നാളെ നിലവിൽ വരുമെന്ന് റെയിൽവേ അറിയിച്ചു

ഭവദാസ്യൻ തൃശൂരിൽ ഇന്ന് പുലർച്ചെ നിര്യാതനായി

മുൻ ഗവൺമെന്റ് പ്ലീഡറും ഇന്ത്യൻ ലോയേഴ്സ് അസോസിയേ ഷൻ ഭാരവാഹിയുമായിരുന്നു

ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ പൈപ്പ്ലൈൻ പദ്ധതി വേഗത്തിലാക്കുന്നത് സംബന്ധിച്ച് ഐ

സി ചെയർമാൻ സഞ്ജീവ് സിംഗ് മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ന്യൂഡൽഹിയിൽ ചർച്ച നടത്തി ഇതുമായി ബന്ധപ്പെട്ട കോർപ്പ റേഷൻ ഉൾപ്പെടെ എല്ലാ ഏജൻസികളുടെയും യോഗം വിളി ക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു